ധർമ്മചക്ര ദിനാഘോഷം രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് രാഷ്ട്രപതി ഭവനിൽ ഉദ്ഘാടനം ചെയ്തു

ഉറവിടമറിയാത്ത രോഗികൾ വർദ്ധിച്ചുതോടെ സംസ്ഥാനത്ത് കനത്ത ജാഗ്രത തിരുവനന്തപുരത്തും എറണാകുളത്തും കർശന നിയന്ത്രണം

ഇന്റർനാഷണൽ ബുദ്ധിസ്റ്റ് കോൺഫഡറേഷനും കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയവും സംയുക്തമായാണ് ആഘോഷം സംഘടിപ്പിച്ചിരിക്കുന്നത്

വാക്കിലും പ്രവർത്തിയിലുമുള്ള ലാളിത്യമാണ് ബുദ്ധദർശനങ്ങളുടെ പ്രത്യേകതയെന്ന് ശ്രീ

സമൂഹത്തിലെ പാവപ്പെട്ടവർ സ്ത്രീകൾ എന്നിവരെയെല്ലാം ബഹുമാനിക്കാൻ പഠിപ്പിക്കുന്ന ബുദ്ധദർശനം സുസ്ഥിര സമൂഹത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമാണ് ശ്രീബുദ്ധ ദർശനങ്ങൾ എക്കാലത്തും പ്രസക്തമാണെന്നും ശ്രീ

ശ്രീബുദ്ധൻ തന്റെ അഞ്ച് അനുയായികൾക്ക് ആദ്യ പ്രബോധനം നൽകിയതിന്റെ സ്മരണാർത്ഥമാണ് ധർമ്മചക്ര ദിനം ആഘോഷിക്കുന്നത് ജൂലൈയിലെ ആദ്യ പൌർണമി ദിനമായ ആഷാഢ പൌർണമിയിലാണ് ലോകമെമ്പാടുമുള്ള ബുദ്ധ മതാനുയായികൾ ധർമ്മചക്ര ദിനം ആഘോഷിക്കുന്നത്

സി എം ആർ ഉം ഭാരത് ബ്രയോടെക്കും ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടും ചേർന്നാണ് കോവിഡ് വാക്സിൻ വികസിപ്പിച്ചത്

സി എം ആർ ഡയറക്ടർ ജനറൽ ഡോ ബൽറാം ഭാർഗവ പറഞ്ഞു

എൽ ന്റെ അംഗീകാരത്തിനായി അപേക്ഷിക്കണമെന്ന് ഐ

കോവിഡ് പരിശോധനകളുടെ ഗുണമേൻമ ഉറപ്പുവരുത്തുന്നതിന് എൻ

എൽ അക്രഡിറ്റേഷൻ നേടാൻ സ്വകാര്യ ലാബുകളോട് നിർദ്ദേശിക്കണമെന്ന് സംസ്ഥാനങ്ങൾക്ക് ഐ സി എം

ടി കോവിഡ് ആദ്യമായാണ് പരിശോധനകൾ നടത്തുന്നത് എന്നതിനാൽ പരിശോധനാ ഫലത്തിന്റെ ആധികാരികത ഉറപ്പുവരുത്താൻ എൻ

എൽ അക്രഡിറ്റേഷൻ അനിവാരൃമാണെന്ന് സംസ്ഥാനങ്ങൾക്ക് എഴുതിയ കത്തിൽ ഐ സി എം

കൂടുതൽ വിവരങ്ങളുമായി ലക്ഷ്മി മോഹൻ

തിരുവനപുരത്ത് പൊലീസുകാരന് കോവിഡ് ബാധിച്ചത് സമരക്കാരിൽ നിന്നാവാമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു ഇദ്ദേഹത്തിന്റെ വീട്ടുകാർക്കോ എ

ക്യാംപിലെ മറ്റു പൊലീസുകാർക്കോ ഇതുവരെ രോഗം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും മന്ത്രി മാധ്യമങ്ങളോടു പറഞ്ഞു

ഇതിന്റെ ഭാഗമായി എറണാകുളത്തെ ചമ്പക്കര മാർക്കറ്റിൽ പൊലീസ് മിന്നൽ പരിശോധന നടത്തി മാസ്ക്ക് ധരിക്കാതെയും സാമൂഹിക അകലം പാലിക്കാതെയും മാർക്കറ്റിൽ നിരവധി പേരെ പൊലീസ് കസ്റ്റഡിയിലെടുത്തു

മത്സ്യതൊഴിലാളിയുടെ ഭാര്യയ്ക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്നാണിത് പ്രധാന വ്യാപാര കേന്ദ്രമായ ബ്രോഡ്വേ അടക്കം എറണാകുളം മാർക്കറ്റും കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്

പരിയാരം മെഡിക്കൽ കോളേജിലായിരുന്നു മരണം മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് ഇന്നലെയാണ് ഇദ്ദേഹത്തെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയതെന്ന് പോലീസ് അറിയിച്ചു ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം സ്രവ പരിശോധനയ്ക്കുള്ള നടപടി ആരംഭിച്ചു

ആകാശവാണി എഫ്

ഓരോ സംഘത്തിലും ആരോഗ്യം റവന്യൂ പോലീസ് തുടങ്ങി വിവിധ വകുപ്പുകളില്ല് ഉദ്യോഗസ്ഥരാണ് അംഗങ്ങളായിട്ടുള്ളത് ഉയർന്ന നിലവാരത്തി്ലുള്ള ശുചീകരണ വസ്തുക്കൾ ലഘുലേഘകൾ എന്നിവ പ്രദേശത്ത് വിതരണം ചെയ്യുന്നുണ്ട് മധുര തഞ്ചാവൂർ ദിണ്ടിഗൽ തുടങ്ങിയ ജില്ലകളിലെ ഉൾപ്രദേശങ്ങളിലും സംഘം സന്ദർശനം നടത്തും

കേരളത്തിന്റെ വികസനത്തിൽ സഹകരണ മേഖല വഹിക്കുന്ന പങ്ക് നിസ്തൂലമാണെന്ന് മൂഖ്യമന്ത്രി പിണറായി വിജയൻ